മഹാരാഷ്ട്രയിൽ കുഴിബ്ബാംബ് സ്ഫോടനത്തിൽ സുരക്ഷാ സ്നോംഗങ്ങൾക്ക് വീരമൃത്യു

ദേശീയ സുരക്ഷയാണ് തന്റെ ഗവണ്മെന്റിന്റെ മുഖ്യപരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധി

രാജ്യത്ത് ചരക്കു സേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വർദ്ധന ഏപ്രിൽ മാസത്തെ ജി

ഫോനി ചുഴലിക്കാറ്റ് ദേശീയ ദുരന്ത പ്രതികരണ സേന അതീവ ജാഗ്രതയിൽ

എല്ലാ രാജ്യങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു

ബസിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതായി മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ദീപക് വസന്ത് കെസാർകർപ്പറഞ്ഞു

ജീവഹാനി സംഭവിച്ച ഭടന്മാരുടെ കുടുംബങ്ങളോടൊപ്പം താൻ നിലകൊള്ളുന്നതായി രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്ത് വികസനവും അപകടത്തിലാക്കാൻ സമാധാനവും ഉന്നമിടുന്നതാണ് തത്വദീക്ഷയില്ലാത്ത ഇത്തരം ആക്രമണങ്ങളെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

അക്രമം അഴിച്ചു വിടുന്നവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ മുന്നറിയിപ്പ് നൽകി മാതൃരാജൃത്തിന്റെ സുരക്ഷ പരിപാലിക്കുന്നതിനായി ത്യാഗം ചെയ്ത ധീര ഭടന്മാർക്ക് അദ്ദേഹം ആദരാജ്ഞലി അർപ്പിച്ചു

ഏർപ്പെട്ടിരിക്കുന്ന പൊലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള കടന്നുകയറ്റം അങ്ങേയറ്റ് പ്രപ്രതിഷേധാർഹമാണെന്ന് ശ്രീ

സൈനികരുടെ രക്തസാക്ഷിത്വം അർത്ഥശൂന്യമാകില്ലെന്ന് പാർട്ടി വക്താവ് രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു

രാജ്യം സുരക്ഷിതമാണെന്ന ഗവണ്മെന്റിന്റെ വാദത്തിന്റെ പൊള്ളത്തരമാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ തെളിയന്നതെന്നും കോൺഗ്രസ് വക്താവ് പറഞ്ഞു

വീരമൃത്യു വരിച്ച ഭടന്മാരുടെ കുടുംബത്തെ അദ്ദേഹം അനുശോചനം അറിയിച്ചു

എ ഗവൺമെന്റ് പാവ പ്പെട്ടവരുടെ ഉന്നമനത്തിനാണ് ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ക്രമസമാധാനം തന്റെ ഭരണകാലത്ത് കൂടുതൽ മെച്ചപ്പെ ട്ടു ദേശീയ സുരക്ഷയാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്ന മറ്റൊരു പ്രധാന വിഷയമെന്നും പശ്ചിമ ബംഗാളിലെ കല്യാണി യിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു

എ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ദേശീയ പൌരത്വ രജിസ്റ്റർ രാജ്യവ്യാപകമായി തയ്യാറാക്കുമെന്ന് ബി ജെ പി ദേശീയാധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു പൌരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കും ഇന്ത്യയിൽ താമസമാക്കിയ കുടി യേറ്റക്കാർ പൌരത്വം ഉറപ്പാണെന്നും പശ്ചിമബംഗാളിലെ കല്യാണി യിൽ പറഞ്ഞു

ന്യൂസ്ഡസ്ക് ആകാശവാണി

ദുരിതാശ്ചാസ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്താൻ വേണ്ടിയാണ് നടപടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിയിരുന്നു

കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിലുള്ള സംഘം ന്യൂഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു നാലാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന ഒഡീഷയിൽ ്ട് ഭർണസംവിധാനങ്ങളുടെ ദുരുപയോഗവും വ്യാപകമായ ത്യോതീൽ നടന്നതായി അദ്ദേഹം ആരോപിച്ചു

വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം നിലനിറുത്തുന്നതിന് പുനരുപയോഗിക്കാ വുന്നതും ഉയരം കൂടിയതുമായ സ്ക്രീനുകൾ ഉപയോഗിക്കു മെന്നും സി ഇ ഒ ചണ്ഡിഗഢിൽ പറഞ്ഞു

എസ്

ഇതിൽ കേന്ദ്ര ജി

സംസ്ഥാനാന്തര ജി

തമിഴ്നാട്ടിലും കേരളത്തിലും ദുരന്തനിവാരണ സേനയെ നിയോഗിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെരഞ്ഞെട്ടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം പാർട്ടിക്കുപക്താവ് മനു അഭിഷേക് സിംങ്വി വാർത്താസമ്മേളനത്തിലിൽണ് ആരോപണം ഉന്നയിച്ചത് സംസ്ഥാനങ്ങളുമായി ബന്ധ്ടപ്പെട്ട ക്കാര്യങ്ങൾ നിതി ആയോഗിലൂടെ ശേഖരിച്ച് തെരഞ്ഞെട്ടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി ഉപയോഗപ്പെടുത്തുകയ്ക്ക്ക് ണ്ണെന്നും ശ്രീ

കമ്മീഷന്റെ ഇത്തരം തീരുമാനം പക്ഷപാതപരമാണെന്ന് അദ്ദേഹം ആരോപിച്ചു

അറസ്റ്റിലായവരിൽ നാല് പേർ മണിപ്പൂരിൽ ്നിന്നുള്ളവരാണ്

ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും രാത്രി എട്ട് മണിക്ക് ചെന്നൈയിലാണ് മത്സരം

രണ്ടു ടീമുകളും ഇതിനകം പ്ലേ ഓഫിന് അർഹത നേടിയിട്ടുണ്ട്

മ്ഫ്യത്ത്ായ രാഷ്ട നിർമ്മാണത്തിൽ തൊഴിലാളികൾ വഹിച്ച പ്രിക്ക് അനുസ്മരിച്ച രാഷ്ട്രപതി അവരുടെ അർപ്പണ മനോഭാവത്തെട്ടും തന്റെ സന്ദേശത്തിൽ പ്രകീർത്തിച്ചു